ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തം വരും ദിനങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഇന്ത്യ ചൈന അതിർത്തി തർക്കം സമവായത്തിലേയ്ക്ക് ഉഭയകക്ഷി ചർച്ച തുടരും

ഗീർ വനങ്ങളിലെ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധന

കോവിഡാനന്തര ലോകത്തെ ഇന്ത്യ ഇസ്രായേൽ സഹരകരണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോൺ സംഭാഷണം നടത്തിയതായി പ്രധാനമന്ത്രി ടിറ്ററിൽ എഴുതി സമീപകാലത്ത് വീണ്ടും ഇസ്രയേൽ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട നെതന്യാഹുവിന് ശ്രീ

ഇതിനായി ഇരു രാജ്യങ്ങളിലെയും വിദഗ്ദ്ധർ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നും ലോക നന്മയ്ക്ക് ഇത് പ്രയോജനകരമാകുമെന്നും ഇരുവരും ഉറപ്പ് നൽകി

കോഴിക്കോട് ജില്ലയിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്

തെന്മല ഗ്രാമ പഞ്ചായത്തിനെ ഹോട്ട്സ്പോട്ട് നിയന്ത്രണങ്ങളിൽനിന്ന് ഒഴിവാക്കി കുളത്തൂപ്പുഴ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തുകളിൽ ഹോട്ട്സ്പോട്ട് നിയന്ത്രണങ്ങൾ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന വാർഡുകളിൽ മാത്രമായി ചുരുക്കി

ഇന്നലെ മൂന്ന് കോവിഡ് മരണം രേഖപ്പെടുത്തി കർണാടകയിൽ മൊത്തം ക്ടിച്ചേർാണ് കോവിഡ് മൂലം മരിച്ചത്

അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ രോഗവ്യാപനത്തിന്റെ തോത് വർദ്ധിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി

വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മധ്യപ്രദേശിൽ സംഘടിപ്പിച്ച വെർച്ചൽ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

അതിർത്തി തർക്കം സംബന്ധിച്ച് സൈനിക തലത്തിലും നയതന്ത്രതലത്തിലും ആശയ വിനിമയം നടക്കുന്നുണ്ട് ഇരുപക്ഷവും തമ്മിലുള്ള ആശയവിനിമയം തുടരും

ഈ സാമ്പത്തിക വർഷം സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടതുകയുടെ വിനിയോഗത്തിലൂടെ കൃഷിക്കായുളള ജലത്തിരിൻു കാര്യക്ഷമമായ ഉപയോഗമാണ് ലക്ഷ്യമിടുന്നത്

യാത്രക്കാർ അതത് പ്രദേശങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയങ്ങളിൽ പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നും എയർ ഇന്ത്യ അറിയിച്ചു

ഇന്നലെ പ്രവാസികളുമായി ഷാർജ ദുബായ് റിയാദ് ജിദ്ദ സലാല എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ കൊച്ചിയിൽ എത്തിയിരുന്നു കണ്ണൂരിൽ ഇന്ന് രാവിട്ട്ല കുവൈത്തിൽ നിന്നും വിമാനമെത്തി

വന്ദേ ഭാരത് ദൌതൃത്തിന്റെ ഭാഗമായി ഇതുവരെ മൂവായിരത്തോളം പേരെയാണ് മാലെദ്വീപിൽ നിന്ന് തിരികെ എത്തിച്ചത്

ഒരു റിപ്പോർട്ട്

വിവിധ തരത്തിലുള്ള സംരക്ഷണ രീതികളും സ്റ്റ്മൂഹിക പങ്കാളിത്തവുമാണ് വർദ്ധനവ് സാധ്യമാക്കിയതെന്നും ക്രിന്ദ്ര്യം കൂട്ടിച്ചേർത്തു സാങ്കേതിക വിദ്യയ്ക്ക് ഊന്നൽ നിൽകി വന്യജീവികളുടെ ആരോഗ്യ സംരക്ഷണം ആവാസ വ്യവസ്ഥയുടെ ശരിയായ പരിപാലനം മനുഷൃരുമായി നേരിട്ടുള്ള സംഘർഷങ്ങൾ കുറയ്ക്കൽ സാമൂഹിക പങ്കാളിത്തം എന്നിവയാണ് ഈ മാറ്റത്തിന് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്നു മുതൽ ശനിയാഴ്ച വരെ കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു